രണ്ടാംഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം വൈകിട്ട് അഞ്ചിന് സമാപിക്കും

എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂരിന് വിജയം വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ അഞ്ച് ജില്ലകൾ അല്പ സമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്

ഇന്നലെ വൈകിട്ട് മൂന്നിന് ശേഷം കോവിഡ് സ്ഥിരീകരിച്ചവർക്കും ക്വാറന്റൈനിലായവർക്കും സ്പെഷ്യൽ വോട്ടർമാർ എന്ന നിലയിൽ വൈകിട്ട് ആറിന് മുമ്പ് പോളിംഗ് ബൂത്തിലെത്തിയാൽ വോട്ട് ചെയ്യാം ക്യൂ നിൽക്കുന്ന സാധാരണ വോട്ടർമാർ വോട്ട് ചെയ്ത ശേഷമായിരിക്കും ഇവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഡെസിഗ്നേറ്റ് ഹെൽത്ത് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം ഇവർ ഹാജരാക്കേണ്ടതാണ് സ്പെഷ്യൽ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും പി

ഇ കിറ്റ് ധരിക്കണം കൈയുറ ധരിച്ച് വേണം വോട്ട് രേഖപ്പെടുത്താൻ പ്രത്യേക പേന ഉപയോഗിച്ച് വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പ് വെയ്ക്കേണ്ടതാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആരോഗ്യ വകുപ്പ് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും

ദേ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേതനത്തോട് കൂടിയ അവധി അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇറക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം സ്ഥലത്തെത്തി വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു അവധി നൽകിയില്ലെങ്കിൽ തൊഴിലുടമയിൽ നിന്ന് പിഴ ഈടാക്കും ദര കഴിഞ്ഞകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പായി ഇപ്പോഴത്തേത് മാറുമെന്ന് കേന്ദ്രസഹമന്ത്രി വി

കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇരു മുന്നണികളും ഒരേ തൂവൽ പക്ഷികളാണെന്ന് മുരളീധരൻ പറഞ്ഞു രുര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാടും കടമ്പൂരിലും അനൌദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് കമ്മറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി മുഴപ്പിലങ്ങാട് ഇൻഡോർ സ്റ്റേഡിയം സന്ദർശിക്കും വൈകീട്ട് കടമ്പൂർ പഞ്ചായത്തിലെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മറ്റി യോഗത്തിലും സംബന്ധിക്കും

ഡി എഫ് കുറ്റപത്രം പുറത്തിറക്കി ഭരണസമിതി നടപ്പാക്കിയ പദ്ധതികളെപ്പറ്റി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അന്വേഷണം നടത്തുമെന്ന് നേതൃത്വം അറിയിച്ചു രംഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെപ്പറ്റി മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം വൈറലാകുന്നു മുളങ്കുറ്റി പഞ്ചായത്തിലെ വട്ടവട ഡിവിഷൻ എന്ന സാങ്കല്പിക പശ്ചാത്തലത്തിലാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് വോട്ട് ചോദിക്കാനെത്തിയ ഡേവിഡേട്ടനോടും സംഘത്തോടും കോവിഡ് പെരുമാറ്റ ചട്ടം പാലിക്കാൻ യുവാക്കൾ മുതൽ മുതിർന്നവർ വരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അവതരണം

ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പും സ്വകാര്യ സെല്ലുലാർ ഓപ്പറേറ്റർമാരുടെ അസോസിയേഷനും ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ടെലികോം സാങ്കേതിക വിദ്യാ മേഖലയിൽ വിദേശ സ്വദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഗവേഷണ വികസന അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സമ്മേളനം ലക്ഷ്യമിടുന്നു രംഭ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഇന്നത്തെ ഭാരത് ബന്ദ് മുൻനിർത്തി സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ ക്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി

ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കോൺഫെഡറേഷനും ഓൾ ഇന്ത്യാ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷനും ബന്ദിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ബന്ദ് മൂലം വിമാനത്താവളങ്ങളിൽ എത്താൻ കഴിയാത്ത യാത്രക്കാർക്ക് നിലവിലെ ടിക്കറ്റിൽ മറ്റൊരു ദിവസത്തേക്ക് യാത്രാ സൌകര്യം ഒരുക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ചില കർഷക സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്

രും കോവിഡ് മഹാമാരിയെ ലോകം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും കലാ കായിക മേഖലകൾ അധികം താമസിയാതെ പഴയ പടിയാവുമെന്നും അന്താരാഷ്ട്ര ബാഡ്മിന്റൺ താരം അപർണാ ബാലൻ ആകാശവാണിയുമായി പ്രത്യാശ പങ്കുവെച്ചു

ഫൈസറും ബയോൺടെകും ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് ബ്രിട്ടൺ അനുമതി നൽകിയത്

രണ്ട് മത്സങ്ങൾ ജയിച്ച ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്

രംഭ ഇന്ന് വൈക്കത്തഷ്ടമി പുലർച്ചെ നാലര മുതൽ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി ദർശനം തുടങ്ങി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ദർശന സമയം വൈകിട്ട് അഷ്ടമി വിളക്കിനും രാത്രി വലിയ കാണിക്ക സമർപ്പണത്തിനും മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് പ്രവേശനം അനുവദിക്കും രുഭ ശനിയാഴ്ച പുലർച്ചെ പഞ്ചാബിൽ വാഹനാപകടത്തിൽ മരിച്ച സൈനികൻ മിഥുൻ സത്യന് കോഴിക്കോട് ജില്ലാ കലക്ടർ കക്കോടി ബദിരൂരിലെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു അഞ്ച് വർഷമായി സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു മിഥുൻ രും മികച്ച മുഖപ്രസംഗത്തിന് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ തെരുവത്ത് രാമൻ അവാർഡിന് ദീപിക ദിനപത്രത്തിലെ അസോസിയേറ്റ് എഡിറ്റർ സെർജി ആന്റണി അർഹനായി

എന്നാൽ മുതുമല തെപ്പക്കാട് ആന ക്യാമ്പ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രുപ കോഴിക്കോട് വെസ്റ്റ്ഹിൽ ബാരക്സ് വിക്രം മൈതാനം എന്നിവയുടെ പരിസരത്തെ വീട് നിർമ്മാണത്തിനും അറ്റകുറ്റ പണികൾക്കും അധികൃതരുടെ എൻ

സി വേണമെന്ന നിബന്ധനയിൽ തദ്ദേശവാസികളുടെ ആശങ്ക ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കേന്ദ്രസഹമന്ത്രി വി